പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യും

രാജ്യത്തെ അന്തരീക്ഷ മലിനീകരണം പരിഹരിക്കുന്നതിന് കേന്ദ്ര സർക്കാർ സ്വീകരിച്ച നടപടികൾ മികച്ചതെന്ന് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി പ്രകാശ് ജാവ്ദേക്കർ

വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ഗവേഷകരും ശാസ്ത്രജ്ഞരുമാണ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത് കോവിഡ് പ്രതിസന്ധിക്ക് ശേഷം നടപ്പാക്കേണ്ട സുസ്ഥിര വികസന പദ്ധതികളെ സംബന്ധിച്ചാകും സമ്മേളനം പ്രധാനമായും ചർച്ച ചെയ്യുക

കേന്ദ്ര ആരോഗ്യമന്ത്രി ഹർഷവർദ്ധനും സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും

സംസ്ഥാനങ്ങളിൽ പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണത്തിലും രോഗമുക്തി നിരക്കിലും മഹാരാഷ്ട്രയാണ് ഒന്നാമത് അതേസമയം പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ കേരളം രണ്ടാമതാണ്

സൺഡേ സംവാദിന്റെ ആറാം പതിപ്പിൽ സാമൂഹ മാധ്യമങ്ങളിലൂടെ സംവദിക്കുകയായിരുന്നു അദ്ദേഹം ജനങ്ങൾക്ക് നവരാത്രി ആശംസകൾ നേർന്ന കേന്ദ്രമന്ത്രി പ്രധാനമന്ത്രിയുടെ ജൻ ആന്തോളൻ ആഹ്വാനത്തിന് പ്രാധാന്യം നൽകണമെന്നും പ്രിയപ്പെട്ടവരുമായി വീടുകൾക്കുള്ളിൽ തന്നെ ആഘോഷങ്ങൾ പരിമിതപ്പെടുത്താൻ ശ്രദ്ധിക്കണമെന്നും ഓർമിപ്പിച്ചു വിശദാംശങ്ങളുമായി ലിൻസ രാജ്യത്ത് കോവിഡ് മഹാമാരി മൂലം ഏതെങ്കിലും തരത്തിൽ ആവശ്യം കൂടുകയാണെങ്കിൽ ഓക്സിജൻ ഉല്പാദനം വർധിപ്പിക്കുമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ഹർഷ് വർദ്ധൻ പറഞ്ഞു

ആഭ്യന്തരമന്ത്രാലയം രൂപീകരിച്ച ശാക്തീകരണ ഗ്രൂപ്പ് രാജ്യത്തെ മെഡിക്കൽ ഓക്സിജന്റെ ആവശ്യകത സൂക്ഷ്മമായി നിരീക്ഷിക്കുക്കയാണ്

എന്നാൽ സംസ്ഥാനങ്ങളിൽ വിവിധ സേവനങ്ങൾ പുനരാരംഭിച്ചതിനൊപ്പം ഓണാഘോഷ പരിപാടികളും സംസ്ഥാനത്തിന് അകത്തും പുറത്തുമുള്ള വ്യാപാര വിനോദസഞ്ചാര യാത്രകളിലെ വർദ്ധനയും കേരളത്തിൽ സ്ഥിതി ഗുരുതരമാകുന്നതിന് വഴിതുറന്നു

ഉത്സവാ്ഘോഷ കാലയളവിനെ നേരിടുന്നതിൽ വേണ്ടത്ര ശ്രദ്ധ പുലർത്താൻ സംസ്ഥാന ഭരണകൂടങ്ങൾക്ക് ഇത് ഒരു പാഠം ആണെന്നും അദ്ദേഹം പ്രറിഞ്ഞു

വാഹനങ്ങളിലെ പുക വ്യവസായശാലകൾ അശാസ്ത്രീയമായ മാലിന്യ സംസ്കരണം പൊടിപടലങ്ങൾ കാർഷിക അവശിഷ്ടങ്ങൾ കത്തിക്കൽ തുടങ്ങിയവയാണ് അന്തരീക്ഷ മലിനീകരണം രൂക്ഷമാകുന്നതിനു പ്രധാനമായും കാരണമാകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു മെട്രോ പൊതുഗതാഗ്രത് സംവിധാനങ്ങൾ പ്രകൃതിവാതകങ്ങളുടെ ഉപയോഗം തുട്ടങ്ങിയവ വർധിപ്പിക്കുകയാണ് അന്തരീക്ഷമലിനീകരണം ചെറുക്കാ്ൻ സർക്കാർ സ്വീകരിച്ച നടപടികളിൽ ഒന്ന് ഭാരത് സ്റ്റേജ് ് മല്ലിനീകരണ നിയന്ത്രണ മാനദണ്ഡങ്ങൾ നടപ്പാക്കാനുള്ള സർക്കാരിൻറെ തീരുമാനവും എടുത്തു പറയേണ്ടതാണ്ണ് ശ്രീ പ്രകാശ് ജാവ്ദേക്കർ വ്യക്തമാക്കി എല്ലാ പ്രധാന നഗരങ്ങളിലും ഇലക്ട്രിക് ബസുകളും മെട്രോകളും പ്രവർത്തനം ആരംഭിക്കുന്നതോടെ രാജ്യത്തിന് പൂർണ്ണമായും മാലിന്യ നിർമ്മാർജ്ജനത്തിലേക്ക് എത്താൻ കഴിയുമെന്ന് അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു

പഞ്ചാബ് ഹരിയാന തുടങ്ങിയ ഇടങ്ങളിൽ കൊയ്ത്ത് കഴിഞ്ഞ പാടങ്ങൾ കത്തിക്കുന്നതാണ് ഡൽഹിയിലെ വായുമലിനീകരണം വർധിപ്പിക്കുന്നത് വായുമലിനീകരണം കുറയ്ക്കുന്നതിന് ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ അതിന്റെ നിർമ്മാണ സ്ഥലങ്ങളിൽ പ്രത്യേക പദ്ധതിക്ക് തുടക്കം കുറിച്ചു പദ്ധതിയുടെ ഭാഗമായി മലിനീകരണ നിയന്ത്രണ പ്രവർത്തനങ്ങളും പരിശോധനകളും വർധിപ്പിക്കും ബാരിക്കേഡ് വച്ചു മറച്ച പ്രദേശങ്ങളിൽ മാത്രമാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടരുന്നതെന്ന് പ്രത്യേകസംഘം ഉറപ്പ് വരുത്തും

തദ്ദേശീയമായി നിർമ്മിച്ച ഇന്ത്യൻ നാവികസേനയുടെ സ്റ്റെൽത്ത് ഡിസ്ട്രോയർ ഐഎൻഎസ്റ് ചെന്നൈയിൽ നിന്നാണ് ബ്രഹ്മോസ് വിക്ഷേപിച്ചത്

ബ്രഹ്മോസ് മിസൈൽ സജ്ജമാകുന്നതോടെ ഇന്ത്യൻ സ്ായുധ സേനയുടെ കരുത്ത് വർദ്ധിക്കുമെന്ന് ഡിആർഡ്ിങ് മേധാവി ജി സതീഷ് റെഡ്ഡി വ്യക്തമാക്കി

എൻഡിഎയുടെയും മഹാസഖൃത്തിന്റെയും നേതാക്കൾ വിവിധ തിരഞ്ഞെടുപ്പ് പ്രചാരണ റാലികളെ അഭിസംബോധന ചെയ്യുന്നുണ്ട് മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് കേന്ദ്രമന്ത്രിമാരായ രവിശങ്കർ പ്രസാദ് അശ്വനികുമാർ ചൌബേ നിത്യാനന്ദ റായ് എന്നിവരും എൻ ഡി എ ക്ക് വേണ്ടി പ്രചാരണ രംഗത്തുണ്ട് മഹാസഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയും ആർജെഡി നേതാവുമായ തേജസ്വി പ്രസാദ് യാദവ് ഇന്ന് ആറിടങ്ങളിലെ പൊതുയോഗത്തിൽ പങ്കെടുക്കുകയാണ് വികസനവും തൊഴിലവസരവും ആണ് തന്റെ പ്രധാന അജണ്ട എന്ന് അദ്ദേഹം നേരത്തെ വൃക്തമാക്കിയിരുന്നു

നഗരത്തിലെ വിവിധ പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാണ്

അതേസമയം പടിഞ്ഞ്റൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ചുഴലിക്കാറ്റ് ആന്ധ്രാ തീരങ്ങളിലേക്ക് വ്യാപിച്ചതായാണ് റിപ്പോർട്ട് ആന്ധ്രാപ്രദേശില്പിലയിടങ്ങളിൽ അടുത്ത രണ്ട് ദിവസങ്ങളിൽ ഇടിയോട് ക്രൂടിയ മഴ ഉണ്ടാകുമെന്ന് കാലാവസ്ഥ കേന്ദ്രം അറിയിച്ചു മഹാരാഷ്ട്രയിൽ സാങ്ലി സതാര കോലാപ്പൂർ ജില്ലകളിൽ തുടർച്ചയായി പെയ്യുന്ന മഴയെത്തുടർന്ന് വ്യാപകമായ കൃഷിനാശമുണ്ടായി

ഇന്ത്യ ന്യൂസിലാന്റ് ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് ഒരുമിച്ച് പ്രവർത്തിക്കാൻ താൽപര്യപ്പെടുന്നതായി പ്രൊനമന്ത്രി അനുമോദന സന്ദേശത്തിൽ പറഞ്ഞു

കോവിഡ് മഹാമാരി ഉൾപ്പടെയുള്ള പ്രതിസന്ധികളിൽ ജസീന്ദ പ്രകടിപ്പിച്ച ഭരണമികവാണ് ഉജ്ജലവിജയത്തിന് വഴി തെളിച്ചതെന്നാണ് വിലയിരുത്തൽ

പ്രത്യേക എയർ ബബിൾ സംവിധാനത്തിന് കീഴിലാണ് ഇരു രാജ്യങ്ങൾക്കും ഇടയിൽ വിമാന സർവ്വീസുകൾ പുനരാരംഭിക്കുന്നത്